് ന്യൂഡൽഹിയിലെ ഐ ടി ഒ സമുച്ചയത്തിൽ നിന്ന് ഒഴിയണമെന്ന സിംഗിൾ ബഞ്ച് ഉത്തരവിനെതിരെ നാഷണൽ ഹെറാൾഡ് സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി

വിശദാംശങ്ങളുമായി വീണ മുകുന്ദൻ വോയിസ് ബാലാക്കോട്ടിലെ ഖൈബർ പക്ത്വൻഖയിലെ ജെയ്ഷെ ഇ മുഹമ്മദ് തീവ്രവാദ താവളങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ സൈനികേതര തീവ്രവാദവിരുദ്ധ പ്രതിരോധ ആക്രമണങ്ങൾക്ക് കടകവിരുദ്ധമായാണ് പാകിസ്ഥാൻ പ്രവർത്തിച്ചതെന്ന് ഇന്ത്യ പ്രസ്താവനയിൽ പറയുന്നു അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിനെതിരെ രാഷ്ട്രത്തിന്റെ സുരക്ഷയും പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കാൻ ശക്തമായ നടപടികൾ എടുക്കാനുള്ള അവകാശമുണ്ടെന്നും ഇന്ത്യ വൃക്തമാക്കി പാകിസ്ഥാനിൽ നിന്നും പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനുള്ള പാകിസ്ഥാന്റെ അന്താരാഷ്ട്ര കടപ്പാടും കർത്തവ്യവും നടപ്പാക്കാതെ ആക്രമണത്തിന് മുതിർന്നത് ദൌർഭാഗ്യകരമാണെന്ന് വിദേശ പ്രതികരിച്ചു മന്ത്രാവലയം തീവ്രവാദത്തിനെതിരെ പാകിസ്ഥാൻ ഉടനട്ടി ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു പുൽവാമ ആക്രമണത്തിലെ ജെയ്ഷെ ഇ മുഹമ്മദ് തീവ്രവാദ സ്ട്ഘടനയുടെ പങ്കും പാകിസ്ഥാനിലെ അവരുടെ ക്യാമ്പുകളുടെ സ്ാന്നിധ്യവും സംബന്ധിച്ചു വിവരങ്ങൾ അടങ്ങിയ രേഖകൾ ഇന്ത്യ പിക്ടീസ്ഥാന് കൈമാറിയിട്ടുണ്ട് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ള ഇന്ത്യൻ വ്യോമസേനാ പൈലറ്റിനെ എത്രയും വേഗം സുരക്ഷിതനായി തിരികെ അയയ്ക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു അദ്ദേഹത്തെ ഒരു തരത്തിലും ഉപദ്രവിക്കാൻ പാടില്ലെന്നും ഇന്ത്യ പാകിസ്ഥാനെ ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇത് തുടർച്ചയായ ഏഴാം ദിവസമാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത്

ആക്രമണ പ്രത്യാക്രമണങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ നിയന്ത്രണരേഖയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള രജൌരി പൂഞ്ച് ജില്ലകളിലും അന്താരാഷ്ട്ര അതിർത്തിയുടെ സമീപമുള്ള സാംബ ജമ്മു ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അധികാരികൾ അവധി പ്രഖ്യാപിച്ചു പാകിസ്ഥാൻ ആക്രമണം തുടരുന്നതിനാൽ പ്രദേശവാസികളോട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്

യു എസ് ബ്രിട്ടൺ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ് ഈ ആവശ്യമുന്നയിച്ചത്

അടുത്തിടെ ഉണ്ടായ പുൽവാമ ആക്രമണം പോലുള്ള അതിർത്തി കടന്നുള്ള ഭീകരവാദം മേഖലയിലെ സുരക്ഷയ്ക്ക് വൻ ഭീഷണി ഉയർത്തുന്നതായും യു എസ് വക്താവ് വാഷിംഗ്ടണിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പുൽവാമ ഭീകരാക്രമണത്തിൽ ജെയ്ഷെ ഇ മുഹമ്മദിന്റെ പങ്കും പാകിസ്ഥാനിൽ ഇവരുടെ കൃാമ്പുകൾ ഉണ്ടെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ ഇന്ത്യ പാകിസ്ഥാന് ക്കെമാറിയതിന് പിന്നാലെയാണ് അമേരിക്കയുടെ പ്രസ്താവന

ദരിദ്രരും നിരക്ഷരരുമായ ആദിവാസി വിഭാഗങ്ങൾക്ക് അവരുടെ വാദങ്ങൾ അധികാരികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളാണ് കേന്ദ്ര ഗോത്രവിഭാഗ മന്ത്രാലയം ഹർജിയിൽ ബോധിപ്പിച്ചിട്ടുള്ളത് തലമുറകളായി വനങ്ങളിൽ കഴിയുന്ന ആദിവാസികൾക്ക് ഇത്തരത്തിലൊരു വിധി ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്

കേന്ദ്ര റെയിൽവെ വകുപ്പ് മന്ത്രി പിയൂഷ് ഗോയൽ ഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചതാണ് ഈ വിവരം ആന്ധ്രപ്രദേശിലെ വിശാഖപട്ടണത്താണ് പുതിയ മേഖലയുടെ ആസ്ഥാനം നിലവിൽ ദക്ഷിണ മധ്യ റെയിൽവെയുടെ കീഴിൽ വരുന്ന ഗുണ്ടാകൽ ഗുണ്ടൂർ വിജയവാഡ എന്നീ ഡിവിഷനുകൾ ഇനി മുതൽ പുതിയ റെയിൽവേ മേഖലയുടെ കീഴിൽ പ്രവർത്തിക്കും

തുടർന്ന് പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും

വോയിസ് യുവശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും ഇന്ത്യയിൽ നടത്തുന്ന ഗവേഷണ വികസന്റെ രംഗങ്ങളിലെ പ്രവർത്തന മികവിന് നൽകുന്ന ഉന്നത ദേശീയി പുരസ്കാരമാണ് ശാന്തി സ്വരൂപ് ഭട്നടർ അവാർഡ്

കൌൺസിൽ ഓഫ് സയന്റിഫിക് ആന്റ് ഇൻഡസ്ട്രിയൽ റിസർച്ച് അഥവാ സി എസ് ഐ ആർ എന്ന സ്ഥാപനത്തിന്റെ മുഖ്യശിൽപിയും സ്ഥാപക ഡയറക്ടറുമായി വിഖ്യാത ശാസ്ത്രജ്ഞൻ ഡോ ശാന്തി സ്വരൂപിന്റെ സ്മരണാർത്ഥമാണ് പുരസ്കാരം നൽകുന്നത് ജൈവിക ശാസ്ത്രം രസതന്ത്രം ഭൌമോപരിതലം സമുദ്ര ഉപഗ്രഹ ശാസ്ത്ര രംഗങ്ങൾ എഞ്ചിനീയറിംഗ് മെഡിക്കൽ തുടങ്ങിയ ഗവേഷണ രംഗങ്ങളിലെ നേട്ടങ്ങൾക്കാണ് അവാർഡ് നൽകുന്നത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജെ

ജെ

പ്രവർത്തകരുമായാണ് പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തുന്നത് എന്റെ ബൂത്ത് ഏറ്റവും ശക്തമായത് എന്ന പരിപാടിയുടെ ഭാഗമായാണ് ആശയവിനിമയം രാജ്യത്ത് വീഡിയോ കോൺഫെറൻസിംഗിലൂടെയുള്ള ഏറ്റവും വലിയ ആശയവിനിമയ പരിപാടിയാകും ഇന്ന് നടക്കുന്നതെന്ന് ബ്രി ജെ

വൃത്തങ്ങൾ അറിയിച്ചു

കെട്ടിടം ഒഴിയണമെന്ന കേന്ദ്ര തീരുമാനത്തെ ചോദ്യം ചെയ്ത് നൽകിയ അപ്പീലാണ് കോടതി തളളിയത്

പാൻ ബാങ്ക് അക്കൌണ്ടുമായി ബന്ധിപ്പിച്ചിട്ടില്ലാത്തവർ തങ്ങളുടെ അക്കൌണ്ടുള്ള ബാങ്കിൽ പാൻ ബന്ധിപ്പിച്ചശേഷം ആദായനികുതി വകുപ്പിന്റെ വെബ്സൈറ്റ് വഴി അത് സാധൂകരിക്കണമെന്നും ആദായനികുതി വകുപ്പ് അറിയിച്ചു സേവിംഗ് കറണ്ട് കാഷ് ഓവർഡ്രാഫ്റ്റ് എന്നീ ഏത് അക്കൌണ്ടും ബന്ധിപ്പിക്കാവുന്നതാണ് നിലവിൽ വ്യത്യസ്ത വിഭാഗത്തിലുള്ള നീകുതിദായകർക്ക് ബാങ്ക് അക്കൌണ്ടുകളിലൂടെയും അക്കൌണ്ട് പേയീ ചെക്കുകളിലൂടെയും തുക കൈമാറുന്നുണ്ട്

ഗുവാഹത്തിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്ന പോളിംഗ് സ്റ്റേഷനുകളിൽ വി വി പാറ്റ് സ്ലിപ്പുകളുടെ എണ്ണവും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ രേഖപ്പെടുത്തിയ തമ്മിൽ ഒത്തുനോക്കും വോട്ടുകളുടെ എണ്ണവും പൊതുതെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള വ്യാജ വാർത്തകൾക്കെതിരെ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ടെന്നും ശ്രീ സാഹു പറഞ്ഞു ഈ ആവശ്യത്തിനായി മീഡിയ സർട്ടിഫിക്കേഷൻ ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും അസമിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി

സംസ്ഥാന തലസ്ഥാനമായ ഇറ്റാനഗരിൽ ക്രമസമാധാന നില സംബന്ധിച്ച ഉന്നതതല അവലോകുന്നു യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മേഖലയ്യ് സാധാരണ നിലയിലേക്കെത്തിക്കാൻ നടപടികളെടുക്കാനും സാഹചര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കാനും മുഖ്യമന്ത്രി ഇന്നലെ ബന്ധപ്പെട്ട അധികാരികളോട് നിർദ്ദേശിച്ചിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് അരുണാചൽ പ്രദേശിൽ സ്ഥിര താമസാവകാശം നൽകിയതിനെ ചൊല്ലിയുണ്ടായ ബന്ദിനെ തുടർന്നാണ് ഇറ്റാനഗറിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടത് സ്ഥിരതാമസം സംബന്ധിച്ച വിഷയം ഉടനടി നടപ്പാക്കില്ലെന്ന് സംസ്ഥാന ഗവൺമെന്റ് വിശദീകരിച്ചിട്ടുണ്ട്

പൊതു സമൂഹത്തിൽ ശാസ്ത്രത്തിന്റെ പങ്കും പ്രസക്തിയും സംബന്ധിച്ച സന്ദേശം പ്രചരിപ്പിക്കുകയാണ് ലക്ഷ്യം ജനങ്ങൾക്ക് വേണ്ടി ശാസ്ത്രം ശാസ്ത്രത്തിന് വേണ്ടി ജനങ്ങൾ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം ദേശീയ ശാസ്ത്രദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു സി വി രാമന് ആദരാഞ്ജലികൾ അർപ്പിച്ചു